ആഞ്ഞടിച്ച് യൂറോപ്യൻ യൂണിയൻ

ഇന്ന് എറണാകുളം കണ്ണൂർ ജില്ലകൾ സന്ദർശിക്കും

ഇന്ത്യയ്ക്ക് വിജയം

ഭീകരർക്ക് താവളമൊരുക്കുന്ന പാകിസ്ഥാന്റെ നടപടിയെ ഇ

ജമ്മു കശ്മീരിൽ നടക്കുന്ന ഭീകരാക്രമണങ്ങളെക്കുറിച്ച് ഇ യു പാർലമെന്റ് വിലയിരുത്തണമെന്ന് സാർനെക്കി ആവശ്യപ്പെട്ടു ഭീകരർ ചന്ദ്രനിൽ നിന്ന് ഇറങ്ങിവരുന്നവരല്ലെന്നും അയൽ രാജ്യത്തുനിന്നാണ് എത്തുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ആണവായുധം പ്രയോഗിക്കുമെന്ന് പാകിസ്ഥാൻ ഭീഷണി മുഴക്കിയിട്ടുണ്ടെന്നും ഇത് ആശങ്ക ഉളവാക്കുന്നതാണെന്നും മർതുഷെല്ലോ പറഞ്ഞൂ പാകിസ്ഥാനിൽ മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെടുകയാണ് അവിടെ നിന്നുള്ള ഭീകരർ യൂറോപ്പിൽ പോലും ആക്രമണങ്ങൾ നടത്തുന്നതായും അദ്ദേഹം പറഞ്ഞു കശ്മീർ വിഷയം ചർച്ചയിലൂടെ പരിഹരിക്കണമെന്ന് ചർച്ചയ്ക്ക് തുടക്കമിട്ട ഇ യു മന്ത്രി ടിറ്റി തപുറയ്നൻ ആവശ്യപ്പെട്ടു

ജമ്മു കശ്മീർ ലഡാക് എന്നിവിടങ്ങളിൽ യാതൊരു തടസ്സവുമില്ലാതെ മുഴുവൻ സമയവും വൈദ്യുതി ലഭ്യമാക്കാനാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നതെന്ന് ശ്രീ

സംസ്ഥാനത്ത് മഞ്ഞുകാലത്തുള്ള വൈദ്യുത വിതരണം മെച്ചപ്പെടുമെന്ന് ഗവർണ്ണർ സത്യപാൽ മാലിക് പറഞ്ഞു പാക് അധിനിവേശ കശ്മീരിൽ വികസനപ്രവർത്തനങ്ങൾ പുനഃസ്ഥാപിച്ച് വരികയാണെന്നും ഗവർണ്ണർ ചൂണ്ടിക്കാട്ടി

ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനും ആത്മവിശ്വാസം വളർത്താനും നടപടി സ്വീകരിച്ചതായി ജമ്മു കശ്മീർ പോലീസ് മേധാവി ദിൽബാഗ് സിങ് പറഞ്ഞു ജനങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന ഭീകരർക്കെതിരെ കടുത്ത നടപടിയെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മുപ്പതോളം ഭീകരരും അവരെ പിന്തുണയ്ക്കുന്നവരും അറസ്റ്റിലായി നിയന്ത്രണരേഖയിൽ ഭീകരരുടെ സാന്നിദ്ധ്യം ഏറെയാണെങ്കിലും നുഴഞ്ഞുകയറ്റം ചെറുക്കാനുള്ള സംവിധാനം ശക്തമാണ് സംഘർഷം സൃഷ്ടിക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമങ്ങളെ ജനം പരാജയപ്പെടുത്തിയതായും അദ്ദേഹം പറഞ്ഞു

ഷാ പറഞ്ഞു ജാമാത്രയിൽ ജോഹർജൻ ആശിർവാദ് യാത്രയ്ക്ക് തുടക്കം കുറിച്ചു കൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നരേന്ദ്രമോദി ഗവണ്മെന്റ് നടത്തിയ ക്ഷേമപ്രവർത്തനങ്ങൾ വിശദ്ദീകരിച്ച ആഭ്യന്തരമന്ത്രി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് അവസരം നല്കണമെന്നും ജനങ്ങളോട് ആവശ്യപ്പെട്ടു

അമിത്ഷാ അറിയിച്ചു

കൈമൂർ കിഴക്കൻ ചമ്പാരൻ ഗയ പറ്റ്ന അർവാൾ മുസാഫർപൂർ ജില്ലകളിലാണ് മരണം റിപ്പോർട്ട് ചെയ്തത് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് മുഖ്യമന്ത്രി നിതീഷ് കുമാർ നാല് ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു പരിക്കേറ്റവർക്ക് സൌജന്യ ചികിത്സ ലഭ്യമാക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു

തങ്ങളുടെ വാദം പൂർത്തിയാക്കുന്നതിനുള്ള ഏകദേശ സമയം അറിയിക്കാൻ ഇരു വിഭാഗങ്ങളോടും സുപ്രീംകോടതി ആവശ്യപ്പെട്ടു

സംഭവത്തിൽ ഇറാന് ബന്ധമുണ്ടെന്ന് ആരോപിച്ച അമേരിക്ക ഉപരോധം കൂടുതൽ ശക്തമാക്കി

ന്യൂഡൽഹിയിൽ കെമിക്കൽ ആന്റ് അലൈഡ് എക്സ്പോർട്ട് പ്രൊമോഷൻ കൌൺസിൽ അവാർഡ് ദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിക്കുന്നതിലൂടെ മെയ്ക്ക് ഇൻ ഇന്ത്യയുടെ ലക്ഷ്യം നേടാനാവുമെന്നും മന്ത്രി പറഞ്ഞു ചെറുകിട ഇടത്തരം വൃവസായ സംരംഭങ്ങളാണ് ഇന്ത്യയുടെ ഭാവിയെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു

പോഷൺ അഭിയാനിന്റെ ഭാഗമായാണിതെന്നും അദ്ദേഹം പറഞ്ഞു പോഷകക്കുറവ് ഉയർത്തുന്ന വെല്ലുവിളികൾ നേരിടാൻ രാജ്യമെമ്പാടും ഈ മാസം ദേശീയ പോഷൺ മാസം ആചരിക്കുക എല്ലാ സംസ്ഥാനങ്ങളും പോഷകക്കുറവിനെതിരെ പോരാടണമെന്നും പോഷൺ മാസാചരണം വലിയ മുന്നേറ്റമായി ഏറ്റെടുക്കണമെന്നും ശ്രീ രാജീവ്കുമാർ ആകാശവാണിയോട് പറഞ്ഞു

കണ്ണൂരിൽ നിന്നും ആകാശവാണി പ്രതിനിധി കെ

വയനാട് തൃശൂർ ജില്ലകളിലെ ദുരന്ത മേഖലകളിൽ ഇന്നലെ പരൃടനം നടത്തിയിരുന്നു

മാതൃഭാഷയ്ക്ക് ശേഷം രണ്ടാം ഭാഷയായി ഹിന്ദി പഠിക്കാൻ മാത്രമാണ് അഭ്യർത്ഥിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു

ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയുടെ ്ളജ്ജില്ല ബാറ്റിംഗാണ് ഇന്ത്യയ്ക്ക് മികച്ച വിജയം സമ്മാനിച്ചത്

ഇന്ത്യയ്ക്കുവേണ്ടി ദീപക് ചാഹർ രണ്ടും നവദീപ് സൈനി രവീന്ദ്ര ജഡേജ ഹർദിക് പാണ്ഡ്യ എന്നിവർ ഓരോ വിക്കറ്റ് വീതവും വീഴ്ത്തി

ഇതിന്റെ ഭാഗമായി രാജ്യത്തിനകത്തും പുറത്തുമുള്ള വിദഗ്ദ്ധർ പങ്കെടുക്കുന്ന ദിദ്വിന അന്താരാഷ്ട്ര ശിൽപ്പശാലയ്ക്ക് ഇന്ന് തുടക്കമാകും